ആദ്യമായി രോഗികളുടെ എണ്ണം ആറായിരം പിന്നിട്ടു ത തിരുവനന്തപുരം ജില്ലയിൽ കോവിഡ് വ്യാപനം മാറ്റമില്ലാതെ തുടരുകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ

ത വീടും വീട്ടു നമ്പറുമില്ലാത്തവർക്ക് റേഷൻകാർഡ് നൽകുമെന്ന് മുഖ്യമന്ത്രി

ശിവശങ്കറിനെ എൻ ഐ എ ചോദ്യം ചെയ്ത് വിട്ടയച്ചു

എൽ ക്രിക്കറ്റിൽ കിങ്സ് ഇലവൻ പഞ്ചാബിന് തകർപ്പൻ ജയം വാർത്തകൾ വിശദമായി സംസ്ഥാനത്ത് പ്രതിദിന കോവിഡ് രോഗികളുടെ നിരക്കിൽ വൻ വർധന ആദ്യമായി രോഗികളുടെ എണ്ണം ആറായിരം പിന്നിട്ടു

സാമ്പിൾ പരിശോധന വർധിച്ചതാണ് രോഗികളുടെ എണ്ണം കുതിച്ചുയരാൻ കാരണമായത്

വിശദാംശങ്ങളുമായി ഹബീബ് റഹ്മാൻ

ന്യൂസ് ഡെസ്ക് ആകാശവാണി ദേദ തിരുവനന്തപുരം ജില്ലയിൽ കോവിഡ് വ്യാപനം മാറ്റമില്ലാതെ തുടരുകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു ഉറവിടം വ്യക്തമല്ലാത്ത നൂറിനുമേൽ രോഗികൾ ഓരോ ദിവസവും ജില്ലയിൽ ഉണ്ടാവുന്നുണ്ടെന്ന് മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു

കണ്ണൂർ ജില്ലയിൽ കോവിഡ് പോസിറ്റീവ് രോഗികളുടെ ഹോം ഐസൊലേഷന് മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത്

രുമ കൊവിഡ് ബാധിച്ച് ചികിത്സയിൽ കഴിയുന്ന പ്രശസ്ത ഗായകൻ എസ് പി ബാലസുബ്രഹ്മണ്യത്തിന്റെ ആരോഗ്യസ്ഥിതി അതീവ ഗുരുതരമായതായി അദ്ദേഹം ചികിത്സയിൽ കഴിയുന്ന ചെന്നൈ എം

പി ബാലസുബ്രഹ്മണ്യത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് രേര ലോകത്ത് കോവിഡ് ബാധിതർ മൂന്നേകാൽ കോടിയിലേക്ക്

രുദ ജീവിത ശൈലീ രോഗ നിയന്ത്രണത്തിന് ഐക്യരാഷ്ട്ര സഭ നൽകുന്ന അവാർഡ് ഈ വർഷം കേരളത്തിന് ലോകാരോഗ്യ സംഘടന ഡയറക്ടർ ജനറൽ ഡോ ടെഡ്രോസ് അഥാനോ ഗബ്രിയേസസ് ആണ് യു

ആരോഗ്യ രംഗത്ത് സംസ്ഥാനം വിശ്രമമില്ലാതെ നടത്തുന്ന സേവനങ്ങൾക്ക് ലഭിച്ച അംഗീകാരമാണ് അവാർഡെന്ന് മന്ത്രി കെ

പ്രാഥമികാരോഗ്യ കേന്ദ്രം മുതൽ എല്ലാ ആശുപത്രികളിലും ജീവിത ശൈലീ രോഗ നിയന്ത്രണത്തിനും ചികിത്സയ്ക്കുമായി വലിയ സൌകര്യങ്ങളാണ് ഗവൺമെന്റ് ഒരുക്കിയിരിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു

എല്ലാ പഞ്ചായത്തുകളിലും സപ്പൈകോ യൂണിറ്റുകൾ ഉറപ്പ് വരുത്തുമെന്നും മാവേലി ഉൽപ്പന്നങ്ങൾ റേഷൻ കടകൾ വഴിയും വിതരണം ചെയ്യുമെന്നും അദ്ദേഹം അറിയിച്ചു സപ്ലൈകോ വിൽപ്പനശാലകളിൽ നിന്ന് വീടുകളിൽ സാധനങ്ങൾ ലഭ്യമാക്കുന്ന സംവിധാനം ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്നതായും മുഖ്യമന്ത്രി പറഞ്ഞു സപ്പൈകോ കൂടുതൽ മെഡിക്കൽ സ്റ്റോറുകൾ ആരംഭിക്കുമെന്നും ഗൃഹോപകരണങ്ങൾക്ക് പ്രത്യേക വിൽപ്പന ശാലകൾ തുറക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു രുമ തിരുവനന്തപുരം സ്വർണ്ണക്കടത്ത് കേസിൽ മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവങ്കറിനെ എൻ ഐ എ കൊച്ചിയിൽ ചോദ്യം ചെയ്ത് വിട്ടയച്ചു

മൂന്നാം തവണയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് ശിവശങ്കറിനെ എൻ

ഐ എ ചോദ്യം ചെയ്തു

നിലവിലെ എല്ലാ സ്റ്റോപ്പുകളിലും ഈ ട്രെയിനുകൾ നിർത്തുമെങ്കിലും റിസർവ് ചെയ്ത യാത്രക്കാർക്ക് മാത്രമേ സ്റ്റേഷനിലും ട്രെയിനിലും പ്രവേശനം അനുവദിക്കൂ യാത്രക്കാർ നിർബന്ധമായും മാസ്ക് ധരിക്കുകയും ഒന്നര മണിക്കൂർ മുമ്പെങ്കിലും സ്റ്റേഷനിലെത്തുകയും വേണം റിസർവേഷൻ ഇന്ന് രാവിലെ എട്ടിന് ആരംഭിക്കും രുര മോട്ടോർ വാഹന വകുപ്പിൽ ലൈസൻസിനും രജിസ്ട്രേഷനും പുതിയ ഓൺലൈൻ സംവിധാനം ഏർപ്പെടുത്തി ലേണേഴ്സ് ലൈസൻസ് ഡ്രൈവിംഗ് ലൈസൻസ് വാഹന രജിസ്ട്രേഷൻ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് എന്നിവ ഓൺലൈനിൽ പ്രിന്റ് എടുക്കാൻ കഴിയും

എൽ ക്രിക്കറ്റിൽ കിങ്സ് ഇലവൻ പഞ്ചാബിന് തകർപ്പൻ ജയം

ഈ സീസണിലെ ആദ്യ സെഞ്ചുറി നേടിയ കെ

എല്ലിൽ വേഗത്തിൽ രണ്ടായിരം റൺസ് തികയ്ക്കുന്ന നേട്ടവും രാഹുൽ സ്വന്തമാക്കി ഇന്ന് ദുബായിൽ ഡൽഹി ക്യാപിറ്റൽസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും രദേ തീരസംരക്ഷണത്തിന് ഗവ അതീവ ശ്രദ്ധയാണ് നൽകുന്നതെന്ന് മന്ത്രി ജെ

ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പ് നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയതും നിർമാണ പ്രവർത്തനങ്ങൾ തുടങ്ങുന്നതുമായ വിവിധ റോഡുകളുടെ ഉദ്ഘാടനം ഓൺലൈനായി നിർവഹിക്കുകയായിരുന്നു മന്ത്രി

രുദ പ്രളയത്തിൽ തകർന്ന റോഡുകളെല്ലാം ഉന്നത നിലവാരത്തിൽ പുനർനിർമ്മിക്കുമെന്ന് മന്ത്രി ജി

മാനന്തവാടി നിയോജക മണ്ഡലത്തിലെ അഞ്ച് റോഡുകളുടെ ഉദ്ഘാടനം ഓൺലൈനായി നിർവഹിക്കുകയായിരുന്നു മന്ത്രി രുമ സംസ്ഥാന ഗവൺമെന്റിനെതിരെ പ്രതിപക്ഷം നടത്തുന്ന സമരങ്ങൾ ജനങ്ങൾക്കെതിരായ യുദ്ധ പ്രഖ്യാപനമാണെന്ന് തിരുവനന്തപുരത്ത് ചേർന്ന സി

ഐ സംസ്ഥാന എക്സിക്യുട്ടീവ് യോഗം കുറ്റപ്പെടുത്തി സാമൂഹ്യക്ഷേമം ആരോഗ്യം പൊതു വിദ്യാഭ്യാസം എന്നീ മേഖലകളെ ശക്തിപ്പെടുത്താനും മാറ്റങ്ങൾ കൊണ്ടുവരാനും ഗവൺമെന്റിന് കഴിഞ്ഞതായി യോഗ വിവരങ്ങൾ തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ച പാർട്ടി സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ പറഞ്ഞു ഇടതു മുന്നണിയിൽ പ്രവേശിക്കും മുമ്പ് ജോസ് കെ മാണിയുടെ കേരള കോൺഗ്രസ് നിലപാട് വ്യക്തമാക്കട്ടെയെന്നും അതിനു ശേഷം ഇടതു മുന്നണി ഇക്കാര്യം ചർച്ച ചെയ്യുമെന്നും അദ്ദേഹം അറിയിച്ചു രുമ പാർലമെന്റിൽ കേന്ദ്ര ഗവൺമെന്റ് പാസാക്കിയ കാർഷിക ബില്ലിനെ സംബന്ധിച്ച് സി

ഐ എം എം പിമാർ യു ഡി എഫ് എം പിമാർക്കെതിരെ നടത്തുന്ന പ്രചരണങ്ങൾ രാഷ്ട്രീയ പ്രേരിതമാണെന്ന് കോൺഗ്രസ്സ് ലോക്സഭാ ചീഫ് വിപ്പ് കൊടിക്കുന്നിൽ സുരേഷ് എം

ബില്ലിനെതിരെ യു

എഫ് എം പിമാർ പാർലമെന്റിൽ ശക്തമായ പ്രതിഷേധമാണ് ഉയർത്തിയതെന്ന് അദ്ദേഹം പ്രസ്താവനയിൽ പറഞ്ഞു ലോക്സഭയിൽ നടന്ന ചർച്ചകളിലുടനീളം കർഷക വിരുദ്ധബിൽ കാർഷിക മേഖലയെ തകർക്കുമെന്ന് യു ഡി എഫ് എം പിമാർ ആരോപിച്ചിരുന്നുവെന്നും കൊടിക്കുന്നിൽ പറഞ്ഞു രുമ പ്രമുഖ സഹകാരിയും സി

പി നേതാവുമായിരുന്ന സി

ദാമോദരൻ കണ്ണൂരിൽ നിര്യാതനായി

തുടർന്ന് പയ്യാമ്പലത്ത് സംസ്കാരിക്കും

രാമ ദേശീയ തലത്തിൽ മികച്ച നാഷണൽ സർവീസ് സ്കീം വിഭാഗത്തിന് കലിക്കറ്റ് സർവകലാശാലയും മികച്ച പ്രോഗ്രാം കോ ഓർഡിനേറ്റർക്ക് കലിക്കറ്റ് സർവകലാശാലയിലെ വിദ്യാർത്ഥി വിഭാഗം ഡീൻ പി വി വത്സരാജും രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിൽ നിന്ന് പുരസ്കാരം ഏറ്റുവാങ്ങി

കൊച്ചി ചെല്ലാനത്ത് തീരസംരക്ഷണം ആവശ്യപ്പെട്ട് കൊച്ചി ജനകീയ വേദിയുടെ ആഭിമുഖ്യത്തിൽ സ്ത്രീകൾ കടൽ സമാധി സമരം നടത്തി